രൂപ സഹായം നൽകുന്ന പദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു

കരിപ്പൂർ വിമാനാപകടത്തിൽ അന്വേഷണത്തിന് പൊലീസിന്റെ നേതൃത്വത്തിൽ സംഘം രൂപികരിച്ചു

കാണാതായ മൂന്നു പേരുടെ മൃതദേഹം കൂടി കണ്ടെത്തി

ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു കേരളത്തിൽ അതിതീവ്രമഴ ബുധനാഴ്ച വരെ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്

പദ്ധതി കർഷകരെ സ്വയംപര്യാപ്ത്രാക്കുമെന്നും കടാശ്വാസത്തിന് വഴിയൊരുക്കുമെന്നും സൌകര്യങ്ങൾക്കും കമ്മ്യൂണിറ്റി ഫാമിംഗ് ഒരുക്കുന്നതിനും ഗ്രാമീണ മേഖലകളിൽ സംഭര്ണ സൌകര്യം സൃഷ്ടിക്കുന്നതിനും സഹായിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് ആക്കം കൂട്ടുന്നതിന്റെ ഭാഗമായാണ് നടപടി

വോയ്സ് ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കീഴിൽ വൻകുതിപ്പിന് പ്രതിരോധ മന്ത്രാലയം തയ്യാറായി കഴിഞ്ഞതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ്സിംഗ്

പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ശ്രദ്ധേയമായ നടപടിയാണിതെന്ന് രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു

മാത്രമല്ല പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഡി ആർ ഡി

ചെയ്യുന്നതും വികസിപ്പിച്ചെടുക്കുന്നതുമായ സാങ്കേതികവിദ്യകൾ ഉപയോഗപ്പെടുത്താനും ഇതുവഴി രാജ്യത്തിനു കഴിയും

മലപ്പുറം അഡീഷനൽ എസ്

ജി

പെരിന്ത്ൽമണ്ണ് എ

പി ഹേമലത ഇൻസ്പെക്ടർമാരായ ഷിബു ്യക എം ബിജു സുനീഷ് പി തങ്കച്ചൻ തുടങ്ങിയവരും സ്പൈബ്ർഹസെൽ അംഗങ്ങളും ടീമിൽ അംഗങ്ങളാണ്

കേന്ദ്രസഹമന്ത്രി വി

വിമാന ദുരന്തത്തിൽപ്പെട്ടവരുടെയും മണ്ണിടിച്ചിലിൽപ്പെട്ടവരുടെയും ആശ്രിതർക്ക് ധനസഹായം സംസ്ഥാനം പ്രഖ്യാപിച്ചതിൽ അപാകതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം പത്തുലക്ഷമായി ഉയർത്തണമെന്ന് സ്ഥലം സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു പ്രതികൂല കാലാവസ്ഥയിലും ദുരന്തത്തിൽ കാണാതായവരെ കണ്ടെത്താനുള്ള ശ്രമം ഊർജ്ജിതമായി തുടരുകയാണ്

മണി ഇ

ഉച്ചതിരിഞ്ഞ് മന്ത്രി എ

കഴിഞ്ഞ ബുധനാഴ്ച നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ മഹിന്ദ രജപക്സെയുടെ പാർട്ടി സഖ്യം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടിയിരുന്നു

ആലപ്പുഴ കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം ഇടുക്കി കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലെർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലെർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി

മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പുയൂർന്നത്കോടെ പെരിയാർ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത് പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി ജലനിരപ്പ് ക്രമാതീതമായിട്ട് ഉയർന്ന സാഹചര്യത്തിൽ മലമ്പുഴ ഡാം തുറക്കാൻ സാധ്യതയുണ്ട്

ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണത്തിന് ആന്ധ്രാപ്രദേശ് വൈ

ആന്ധ്രാപ്രദേശിന് സാധ്യമായ എല്ലാ സഹായവും പ്രധാനമന്ത്രി ഉറപ്പ് നൽകി

ആഭ്യന്തരമന്ത്രി അമിത് ഷായും അന്നുശോചനം അറിയിച്ചു

ദെസ്പാങ്ങിലെ സംഘർഷ സാഹചര്യം ലഘൂകരിക്കുന്നതിനുള്ള നടപടികളാണ് ഇന്ത്യ നടത്തിയത് മൂന്നാം മൌണ്ടൻ ഡിവിഷൻ മേധാവി മേജർ ജനറൽ അഭിജിത്ത് ബാപ്പത്താണ് ഇന്ത്യൻ സംഘത്തെ നയിച്ചത് യഥാർത്ഥ നിയന്ത്രണരേഖയിൽ ദൌലത്ത് ബഗ് ഓൾഡിയിലാണ് ഇന്നലെ ചർച്ച നടന്നത് ദെസ്പാങ് വിഷയത്തിലൂന്നിയുള്ള കോർ കമാൻഡർതല ചർചയ്ക്ക് മുന്നോടിയാണിത്

രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ പോലെ ആന്റമാനിലേയ്ക്കും വേഗതയേറിയ മൊബൈൽ ലാൻഡ് ലൈൻ ടെലികോം സേവനങ്ങൾ എത്തിക്കാൻ ഇത് ഉപകരിക്കും